ഒറ്റക്കെട്ടായി പോരാടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രോഗബാധ സ്മീരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ്ജി്ല്ലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയതായി മന്ത്രി കെ

കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും ന് പെൻഷൻകാരുടെയും ക്ഷാമബത്ത നാല് ശതമാനം വർദ്ധിപ്പിച്ചു

ബി

രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സൌരാഷ്ട്രയ്ക്ക്

ബംഗാളിനെതിരെയുള്ള ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ബലത്തിൽ

വിശദാംശങ്ങളുമായി ആമിന നജ്മ

ഇതിനായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പരസ്പരം ആശയങ്ങൾ കൈമാറാമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഒരുമിച്ച് നിന്ന് പോരാടി ലോകത്തിന് സന്ദേശം നൽകാനും കൂടുതൽ ആരോഗൃപൂർണ്ണമായ ഭൂമി സൃഷ്ടിക്കാനും സാർക്ക് രാജ്യങ്ങൾക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള ജനസംഖ്യയുടെ ഗണ്യമായ പങ്കുള്ള ദക്ഷിണേഷ്യ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് സാദ്ധ്യമായ എല്ലാ വഴികളും തേടണമെന്നും ട്വീറ്റുകളിലൂടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിമാനത്താവളങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കും വിമാനത്താവളത്തിൽ എല്ലാവരെയും പരിശോധിക്കും ഹോം സ്റ്റേകളും റിസോർട്ടുകളും നിരീക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി

ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ജില്ലയിലുടനീളം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കളക്ടറുടെ നേതൃത്വത്തിൽ കോർപറേഷന്റേയും മുൻസിപ്പാലിറ്റികളുടേയും പഞ്ചായത്തുകളുടേയും സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നും മന്ത്രി വൃക്തമാക്കി എല്ലാ പഞ്ചായത്തുകളിലും യോഗം വിളിച്ച് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി

എന്നിവ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയിട്ടുണ്ട് പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രിയിലും ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലും ഐസൊലേഷൻ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടി

പി ഡയറക്ടർ ജനറലൂമായി ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇവരെ വിട്ടയയ്ക്കാൻ തീരുമാനമായത്

ജനങ്ങൾ കൂട്ടം ചേരുന്നത് പരമാവധി ഒഴിവാക്ക്ണ്മെന്ന് നിർദ്ദേശമുണ്ട്

്സൌരാഷ്ട്രയുടെ പ്രഥമ രഞ്ജി കിരീടമാണിത് ക്ട്ടഫ്ടനലിൽ ബംഗാളിനെതിരെ നേടിയ ഒന്നാം ഇന്നുംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് സൌരാഷ്ട്ര കിരീടം സ്വന്തമാക്കിയത്